ദേശീയ സരസ്മേളക്ക് നാളെ കണ്ണൂരിൽ തുടക്കമാവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രൌപിനെ ജനപ്രതി നിധി സഭ ഇംപീച്ച് ചെയ്തു

ഖേലോ ഇന്ത്യ ഗെയിംസ് ജനുവരി പത്തിന് ഗോഹട്ടിയിൽ തുടങ്ങും കലിക്കറ്റ് സർവ്വകലാശാല അത്ലറ്റിക് മീറ്റിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളജും പാലക്കാട് മേഴ്സി കോളജും മല ബാർ ക്രിസ്ത്യൻകോളജും മുന്നേറുന്നു കോഴിക്കോട് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ സർഗാലയ അന്താരാഷ്ട് കരകൌശലമേള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും

ബംഗ്ലാദേശ് ഉഗാണ്ട ഉസ്ബ ക്കിസ്ഥാൻ തയ്ലണ്ട് നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നും കര കൌശലവിദഗ്ധർ എത്തും മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ ടി പി രാമകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും വിദേശ വിനോദസഞ്ചാ രികൾ ഉൾപ്പെടെ രണ്ട് ലക്ഷത്തോളം പേർ മേളയും പ്രദർശനവും കാണാൻ എത്തുമെന്നാണ് വിലയിരുത്തൽ ജനതാദൾ എസും ലോക് താന്ത്രിക് ജനതാദളും തമ്മിൽ ലയി ക്കുന്നത് സംബന്ധിച്ച് ദേശീയതലത്തിൽ ചർച്ച നടന്നിട്ടില്ലെന്ന് മുൻപ്രധാനമന്ത്രിയും ജനതാദൾ എസ് ദേശീയ പ്രസിഡന്റുമായ എച്ച് ഡി ദേവഗൌഡ വ്യക്തമാക്കി ഇരുപാർട്ടികളും തമ്മിൽ ലയന ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു പൌരത്വഭേദഗതിയോട് എതിർപ്പ് തുടരുമെന്നും ഭേദഗതിയെ എതിർക്കുന്ന പാർട്ടികളോട് യോജിച്ചാണ് പാർല്മെന്റിൽ നിലപാ ടെടുത്തതെന്നും ദേവഗൌഡ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംസ്ഥാന കുടുംബശ്രീ മിഷൻ വഴി നടത്തുന്ന ദേശീയ സരസ് മേള ന്റാളെ കണ്ണൂരിൽ ആരംഭിക്കം കണ്ണൂർ ഗവ എഞ്ചിനീയറിംഗ് കോളജ് ഗ്രൌണ്ടിൽ വൈകുന്നേരം മന്ത്രി എ

മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ സൂക്ഷ്മ ചെറുകിട്ട സ്ംരംഭകരുടെ ഉത്പന്നങ്ങൾക്ക് രാജ്യത്തെമ്പാടും വിപണ്ന സംവിധാനം ഒരുക്കുക എന്നതാണ് ദേശീയ സരസ് മേളയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ദ്രു സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നു മായ് ചെറുകിട സൂക്ഷമ സംരഭകരും കരകൌശല വിദഗ്ധരും അവരുടെ വൈവിധ്യമാർന്ന ഉത്പന്നങ്ങളും മേളയിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ജെയിംസ് മാത്യു എം

എ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ചട്ടങ്ങൾ പാലിക്കാതെയാണ് സൊസൈറ്റിക്ക് സോഫ്റ്റ് വെയർ അപ്ഡേഷൻ ചുമതല നൽകിയതെന്ന് ഹർജിയിൽ പറയു ന്നു

പൊലീസിന്റെ സകല നീക്ക ങ്ങളും ഇതുവഴി ഊരാളുങ്കലിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു

ചൊവ്വാഴ്ച വരെ ലഭിച്ച വരുമാന ത്തിൽ നിന്നാണ് ശമ്പളം പൂർണമായും വിതരണം ഉചയ്തത് അടു ത്തമാസത്തെ ശമ്പളം കാലതാമസം കൂടാതെ നൽകുന്നതിന് നട പടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് തിരുപ്പിന്ത്രപുരത്ത് അറിയി ച്ചു പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് ഡൽഹി മെട്രോയിലെ നിരവധി സ്റ്റേഷനുകൾ അടച്ചു

ഡൽഹിയിൽ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം കണക്കിലെടുത്ത് ചെങ്കോട്ടയിലും കിഴക്കൻ ഡൽഹിയുടെ ചില ഭാഗ ങ്ങളിലും പൊലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ചെങ്കോട്ടയിലും മാണ്ഡ്യ ഹൌസിലും പ്രതിഷേധത്തിന് അനുവാദം നൽകിയിട്ടില്ലെന്ന് ഡൽഹി പൊലീസ് അധികൃതർ ആകാശവാണിയോട് പറഞ്ഞു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനാകുന്ന യോഗത്തിൽ പോർച്ചുഗീസ് പ്രധാനമന്ത്രി അന്റോണിയോ കോസ്റ്റയും പങ്കെടു ക്കും

രാജ്യാന്തര ആഘോഷ സമിതിയിൽ മുൻ ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ ബാൻ കി മൂണും അംഗമാണ് ജമ്മു കശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ പാക്കിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ച് നിയന്ത്രണരേഖയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്കും ഗ്രാമങ്ങൾക്കും നേരെ ഇന്ന് രാവിലെ വെടിവെച്ചു ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചതായും ആളപായം ഉണ്ടാ യതായി റിപ്പോർട്ടില്ലെന്നും സൈനിക കേന്ദ്രങ്ങൾ ജമ്മുവിൽ അറി യിച്ചു

അമേരിക്കൻ പ്രതിനിധി സഭ ഇംപീച്ച് ചെയ്യുന്ന മൂന്നാമത്തെ പ്രസിഡന്റാണ് ഡ്യൊണാൾഡ് ട്രംപ്

എന്നാൽ സെനറ്റ് കുറ്റ വിമുക്തരാക്കിയതിനാൽ രണ്ടുപേർക്കും സ്ഥാനമൊഴിയേണ്ടി വന്നി ല്ല അധികാര ദുർവിനിയോഗം ഉക്രൈയിനുമായി ബന്ധപ്പെട്ട കാര്യ ത്തിൽ യുഎസ് കോൺഗ്രസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ട്രംപിനെ ഇംപീച്ച് ചെയ്തത് ജന പ്രതിനിധിസഭ പാസ്സാക്കിയ പ്രമേയം സെനറ്റിലും പാസ്സായാൽ മാത്രമേ ട്രംപിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാകുകയുള്ളൂ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിൽ നൂറ് സെന റ്റർമാരടങ്ങിയ ജൂറി ട്രംപിനെ വിചാരണ ചെയ്യും

എന്നാൽ സെനറ്റിൽ ട്രംപിന്റെ റിപ്പ ബ്ലിക്കൻ പാർട്ടിക്കാണ് ഭൂരിപക്ഷം അമേരിക്കയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട നടപടിയെന്ന് വൈറ്റ്ഹൌസ് പ്രതികരിച്ചു ഇംപീച്ച്മെന്റ് ഏകപക്ഷീ യവും നിയമവിരുദ്ധവുമാണെന്ന് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ട ണിൽ പറഞ്ഞു താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ജനാധിപത്യ ത്തിനെതിരെ ഡെമോക്രാറ്റുകൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാ ണെന്നും ട്രംപ് പറഞ്ഞു മൂന്നാമത് ഖേലോ ഇന്ത്യ ഗെയിംസ് മുൻ നിശ്ചയ പ്രകാരം ജനു വരി പത്തിന് ഗോഹട്ടിയിൽ ആരംഭിക്കുമെന്ന് അസം ഗവൺമെന്റ് അറിയിച്ചു മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്

കാലിക്കറ്റ് സർവകലാശാല അത്ലറ്റിക് മീറ്റിൽ പുരുഷൻമാരിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണകോളെജും വനിതകളിൽ പാലക്കാട് മേഴ് സി കോളെജും ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളെജും മുന്നേറുന്നു

ഹൈജംപിൽ മണ്ണാർക്കാട് എം ഇ എസ് കോളെജിലെ എം ജിഷ്ണയും ഡിസ് ക്കസ്ത്രോയിൽ പാലക്കാട് മേഴ്സി കോളെജിലെ സോഫിയ എം ഷാജുവും ലോംഗ്ജംപിൽ ക്രൈസ്റ്റ് കോളെജിലെ മുഹമ്മദ് സാലിഹും സ്വർണം നേടി

ഇന്നലെ ബംഗളുരു എഫ്സി മറുപ ടിയില്ലാത്ത രണ്ട് ഗോളിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ തോൽപിച്ചു അടുത്ത സീസണിലേക്ക് ഐപിഎൽ താരലേലം ഇന്ന് കൊൽക്കത്തയിൽ നടക്കും

താരങ്ങ ളുടെ ഏറ്റവുമുയർന്ന അടിസ്ഥാന വില രണ്ട് കോട്ടി രൂപയാണ് കോഴിക്കോട് തിരുവമ്പാടി മുത്തപ്പൻപ്പുഴയിൽ വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം ഏഴംഗസംഘത്തിൽ പെട്ട സ്ത്രീ ഉൾപ്പടെ നാല് പേരെ തിരിച്ചറിഞ്ഞു പ്രദേശത്തെ ചായ കടയിലെത്തിയ സംഘം ഒരു വീട്ടിൽ നിന്നും ഭക്ഷ്യ പ്രസ്തുക്കൾ ശേഖരിച്ചാണ് മടങ്ങിയത് സംഭവത്തിൽ തിരുവമ്പാട്ടി പോലീസ് അന്വേഷണം തുടങ്ങി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് ഗവ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു കേരളത്തെ വ്യവസായ സൌഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യമാണ് ഗവ്ൺമെന്റ് നിറവേറ്റിവരുന്നത് ഗെയ്ൽ പൈപ്പ്ലൈൻ പദ്ധതി ഉടൻ പൂർത്തിയാകും മൂന്ന് കിലോമീറ്റർ കൂടി മാത്രമാണ് പൈപ്പ് ഇടാൻ ശേഷിക്കുന്നത് പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാകു മെന്ന് തിരുവനന്തപുരത്ത് മുതിർന്ന മാധ്യമപ്രവർത്തകരുമായി സംവ ദിക്കവേ മന്ത്രി അറിയിച്ചു ആർദ്രം ജനീകീയ ക്യാംപയിന്റെ ഭാഗാമായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കോഴിക്കോട് ജില്ലയിൽ മൂന്ന് സ്കാഡുകളിലായി ബേക്കറി വൈൻ നിർമാണ യൂണിറ്റുകളിൽ മിന്നൽ പരിശോധന നടത്തി

ശുചിത്വമാനണ്ഡങ്ങൾ പാലിക്കാതിരുന്ന പുതിയപാലത്തെ ഒരു സ്ഥാപനം താത്കാലികമായി അടപ്പിച്ചു സിഐടിയു സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ഇന്ന് സമാ പിക്കും പൈകിട്ട് സമാപന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും